ത കോവിഡ് ആരോഗ്യ പ്രവർത്തകരുടെ ഇൻഷുറൻസ് കാലാവധി ആറു മാസത്തേക്ക് കൂടി നീട്ടി

വാർത്തകൾ വിശദമായി ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞിട്ടും സംസ്ഥാനത്ത് പലയിടത്തും ഇപ്പോഴും ജാഗ്രത കുറവ് കാണുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തി

മുൻകരുതൽ സ്വീകരിക്കുന്നതിലെ വീഴ്ച്ചകൾ അപകടകരമാണെന്ന് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു

സ്വയം നിയന്ത്രണം പാലിക്കാനും മുൻകരുതലുകൾ സ്വീകരിക്കാനും പലരും തയാറാകുന്നില്ല

രാജ്യ ശരാശരിയും മറ്റ് ചില സംസ്ഥാനങ്ങളിലെ കണക്കും ഇതിലേറെയാണ് വാക്സിനുകൾ വരുന്നതുവരെ മാസ്ക് ധരിക്കുകയും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ജാഗ്രത പുലർത്തുകയും ചെയ്ത് സ്വയം സുരക്ഷാ കവചം തീർക്കാൻ തയാറാകണമെന്ന് അദ്ദേഹം നിർദേശിച്ചു ആൾക്കൂട്ടം ഒഴിവാക്കുകയും അടഞ്ഞ സ്ഥലങ്ങളിൽ ഒരുമിച്ചിരിക്കുന്നത് ഒഴിവാക്കുകയും വേണം കോവിഡുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് പൊലീസിന് സന്നദ്ധ പ്രവർത്തകരുടെ സഹായം ആവശ്യമുണ്ടെന്നും ചെറുപ്പക്കാർ ഇതിനായി മുന്നോട്ട് വരണമെന്നും ആവശ്യപ്പെട്ടു ഇങ്ങനെ നിയോഗിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് കഴിവും പരിചയ സമ്പത്തും രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ഇവരെ പത്ത് ദിവസം കഴിഞ്ഞ് കോവിഡ് ടെസ്റ്റിന് വിധേയമാക്കും

ഒ അറിയിച്ചു

രേര കോവിഡ് പ്രതിരോധത്തിൽ പങ്കെടുക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ പ്രധാൻമന്ത്രി ഗരീബ് കല്യാൺ പാക്കേജ് ഇൻഷുറൻസ് കാലാവധി ആറു മാസത്തേക്കു കൂടി നീട്ടി

രുഭ കോവിഡ് സാഹചര്യത്തിൽ പാർലമെന്റ് അംഗങ്ങളുടേയും കേന്ദ്ര മന്ത്രിമാരുടേയും ശമ്പളത്തിലും അലവൻസിലും മുപ്പത് ശതമാനത്തോളം കുറവ് വരുത്തുന്ന ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി ഏപ്രിൽ ഏഴിന് പുറപ്പെടുവിച്ച ഓഡിനൻസിന് പകരമാണ് ബിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് മുതൽ ഒരു വർഷത്തേക്കാണ് ശമ്പളവും അലവൻസുകളും കുറയ്ക്കുന്നത് രദേ ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി

കൃഷ്ണദാസിന് കോവിഡ് സ്ഥിരീകരിച്ചു തെലങ്കാന സന്ദർശനത്തിന് ശേഷം തലശേരിയിലെ വീട്ടിൽ അദ്ദേഹം നിരീക്ഷണത്തിലായിരുന്നു ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു

ശംഖുമുഖം എയർപോർട്ട് റോഡിന്റെ നിർമ്മാണം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

കോഴിക്കോട് ബാലുശേരി നിയോജക മണ്ഡലത്തിലെ റോഡ് നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രുമ കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്ക പാതയുടെ സർവ്വെ പ്രവർത്തനങ്ങൾ മറ്റന്നാൾ തുടങ്ങും

ഇടുക്കിയിലെ ചെമ്മണ്ണാർ ഗ്യാപ് റോഡ് നിർമ്മാണം മന്ത്രി ജി

രാജ്യാന്തര നിലവാരത്തിലാണ് നിർമ്മാണം പീരുമേട് ദേവികുളം സംസ്ഥാന പാതയുടെ ഭാഗമായ കുട്ടിക്കാനം ചപ്പാത്ത് റോഡിന്റെ നവീകരണ ജോലികൾ നാളെ ഉച്ചക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും

വി സബ്സ്റ്റേഷൻ കോമ്പൌണ്ടിൽ വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടന ചടങ്ങ്

രുമ സംസ്ഥാനത്തെ ഐ ടി ഐ കളുടെ പരിശീലന നിലവാരവും അടിസ്ഥാന സൌകര്യവും ഉയർത്തുമെന്ന് മന്ത്രി ടി

ടി ഐ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് രാജ്യത്തിനകത്തും പുറത്തും മികച്ച തൊഴിലവസരമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു കണ്ണൂർ തോട്ടട ഐ ടി

റെവന്യൂ വകുപ്പിലെ പ്രധാനപ്പെട്ട ഓഫീസുകളിൽ ഒന്നാണ് വില്ലേജ് ഓഫീസെന്നും അതിന്റെ സ്ഥിതി മെച്ചപ്പെടുത്തേണ്ടത് വലിയ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇടുക്കി കാഞ്ചിയാർ ലബ്ബക്കടയിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രുമ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ മികച്ച പ്രവർത്തനങ്ങളെ തള്ളിക്കളയാൻ ഒരു ഗവൺമെന്റിനും കഴിയില്ലെന്ന് മന്ത്രി എം

മണി വിലയിരുത്തി കല്ലാറിൽ അയൽക്കൂട്ടങ്ങളുടെ ജെ

ജി സബ്സിഡി വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കരിപ്പിലങ്ങാട് ഗവൺമെന്റ് ട്രൈബൽ യു പി സ്കൂളിന്റെ കെട്ടിടവും മറ്റൊരു ചടങ്ങിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു ദരദ നാട്ടിൽ ധാരാളം കലാകാരൻമാരുണ്ടെങ്കിലും അവർക്ക് അവസരങ്ങൾ ലഭ്യാമാകുന്നില്ലെന്ന് മന്ത്രി എ

ഹാസ്യ നടൻ വെള്ളൂർ പി രാഘവൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രാദേശിക കലാകാരൻമാരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സ്മാരക മന്ദിരങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി നിർദേശിച്ചു ദേദ ലൈഫ് മിഷന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ മൂന്ന് ഭവന സമുച്ചയങ്ങൾ കൂടി നിർമ്മിക്കും

പതിനായിരം രൂപക്ക് മുകളിൽ പണം പിൻവലിക്കുന്നവർ പിൻ നമ്പറിന് പുറമെ രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ ലഭിക്കുന്ന ഒറ്റത്തവണ പാസ് വേർഡും രേഖപ്പെടുത്തണം

രുമ കൊങ്കൺ പാതയിൽ ട്രെയിൻ ഗതാഗതം പുനരാരംഭിച്ചതായി റെയിൽവെ അറിയിച്ചു വടക്കൻ ഗോവയിലെ പെർണം മദൂർ തുരങ്കത്തിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായതിനെ തുടർന്നാണ് സർവ്വീസുകൾ തുടങ്ങിയത് രുമ തിരുവനന്തപുരം സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ മെഡിക്കൽ റിപ്പോർട്ട് അന്വേഷണ സംഘം ഇന്ന് പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചേക്കും തൃശൂർ മെഡിക്കൽ കോളജിലായിരുന്ന സ്വപ്നയെ പരിശോധനയ്ക്ക് ശേഷം വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു മറ്റൊരു പ്രതി റമീസിനെയും ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റി